ദക്ഷിണ കൊറിയയും ധാരണയിലെത്തി

കശ്മീരികൾക്ക് സുരക്ഷ ഉറപ്പാക്കണ്മെന്ന് സുപ്രീം കോടതി

കുറ്റക്കാർക്കെതിരെ കർക്കശ നടപടിയെന്ന് മുഖ്യമന്തി

ഇത് സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും കൊറിയൻ ദേശീയ പൊലീസും ധാരണാപത്രത്തിൽ ഒപ്പിട്ടു പുൽവാമ ഭീകരാക്രമണത്തെ ശക്തിയായി അപലപിച്ച ദക്ഷിണ കൊറിയൻ പ്രധാനമന്ത്രി മൂൺ ജെ ഇൻ മാനുഷികതയ്ക്കും സംസ്ക്കാരത്തിനും എതിരായ ഭീകരവാദത്തെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും ചൂണ്ടിക്കാട്ടി പുൽവാമ സംഭവത്തിൽ ഇന്ത്യക്ക് ശക്തമായ പിന്തുണ നൽകിയ ദക്ഷിണ കൊറിയക്ക് പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയും നന്ദി അറിയിച്ചു അന്താരാഷ്ട്ര സഹകരണത്തിൽ ആഗോള വളർച്ചയ്ക്കും മനുഷ്യ വിഭവശേഷി വികസനത്തിനുമായി ഏർപ്പെടുത്തിയ സോൾ സമാധാന പുരസ് കാരം പ്രധാനമന്ത്രി അൽപ്പം മുൻപ് ഏറ്റുവാങ്ങി

വ്യോയ്സ് ദക്ഷിണ കൊറിയൻ ഭരണാധികാരി മൂൺ ജെ ഇന്നുമായി പ്രധാനമന്ത്രി നരേന്ദ്ര മോദി നട്ത്തിയ ചർച്ചയിലാണ് ഭീകരവാദത്തിന് എതിരായി സഹകരിക്കുന്നതുൾപ്പെടെയുള്ള നിരവധി ധാരണാപത്രങ്ങളിൽ ഒപ്പിട്ടത്

മൂൺ ജെ ഇന്നുമായി നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു ദക്ഷിണ കൊറിയയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം പുതിയ ഉയരങ്ങളിൽ എത്തിയിരിക്കുകയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ലോകത്തിന്റെ കൂടി ആവശ്യമാണെന്നും ശ്രീ മോദി പറഞ്ഞു തീവ്രവാദം തടയുന്നതിലും കൊറിയൻ ഉപദ്വീപിൽ സമാധാനം പുലർത്തുന്നതിനും ശ്രീ മൂൺ ജെ ഇൻ വഹിക്കുന്ന പങ്ക് നിർണ്ണായകമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ദ്വിദിന സന്ദർശനാർത്ഥം ഇന്നലെ ദക്ഷിണ കൊറിയൻ തലസ്ഥാനമായ സോളിൽ എത്തിയ ശ്രീ

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇന്നലെ രാത്രിയിലാണ് സംഭവം ബരാമുള്ളയിലെ വാർപോരയിൽ സേന നടത്തിയ തെരച്ചിലിനിടെയാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത് മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല തെരച്ചിലിന്റെ പശ്ചാത്തലൂത്തിൽ മേഖലയിലെ വാർത്താവിനിമയ സേവനങ്ങളും ഇന്റർന്റ്റ് ബന്ധവും സൈന്യം വിച്ഛേദിച്ചിരിക്കുകയാണ്

ഇന്നലെ ഇസ്ലാമാബാദിൽ പാക്കിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ നേതൃത്വത്തിൽ നടന്ന സുരക്ഷാ കൌൺസിൽ യോഗത്തിന്റേതാണ് ഈ തീരുമാനം

ആൾകൂട്ട ആക്രമണങ്ങൾ തടയുന്നതിനും കശ്മീരി വിദ്യാർത്ഥികൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിനും പ്രത്യേക ഉദ്യോഗസ്ഥനെ നിയമിക്കണമെന്നും സുപ്രീംകോടതി ഉത്തരവിട്ടു

ഭീകരതയെ പിന്തുണയ്ക്കുന്നവരെയും സഹായം നൽകുന്നവരേയും നിയമത്തിന് മുന്നിലെത്തിക്കാൻ ഇന്ത്യയോടൊപ്പം സഹകരിക്കണമെന്നും സുരക്ഷാ കൌൺസിൽ ആവശ്യപ്പെട്ടു പുൽവാമ ഭീകരാക്രമണം അതിനീച്വും ഭീരുത്വവും നിറഞ്ഞ നടപടിയാണ് സംഭവത്തിന്റെ ഉത്തരപ്പാദിത്തം ഏറ്റെടുത്ത ജെയ്ഷെ മുഹമ്മദ് ഭീകരസംഘടനുയെ സുരക്ഷാ കൌൺസിൽ വിമർശിച്ചു

ആക്രമണത്തിൽ പരിക്കേറ്റ് ജവാന്മാർ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കുമെന്നും കൌൺസിൽ പ്രത്യാശിച്ചു

കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയാണ് നിലപാട് വ്യക്തമാക്കിയത്

പുൽവാമ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം

തുടർന്ന് അദ്ദേഹം അക്ഷരവിദ്യാലയത്തിലെ വിദ്യാർത്ഥികളുമായി ആശയ വിനിമയം നടത്തും രാഷ്ട്രപതിയുടെ ആന്ധ്രപ്രദേശ് സന്ദർശനത്തോട് അനുബന്ധിച്ച് വിപുലമായ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്

രാജ്യത്തെ ആറ് കോടി പ്രോവിഡന്റ് ഫണ്ട് അംഗങ്ങൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും

മഞ്ഞ് വീഴ്ച്യും തുടരുമെന്നാണ് കാലാവസ്ഥ വകുപ്പിന്റെ പ്രവചനം കൂടുതൽ വിവരങ്ങളുമായി ലക്ഷ്മി ശ്രീ വിജയ വോയ്സ് നാളെ മുതൽ മഴയ്ക്ക് സാദ്ധ്യതയുള്ളതിനാൽ വിവിധ സംസ്ഥാനങ്ങളിലെ താപനില രണ്ട് ഡിഗ്രി സെൽഷ്യസ് വരെ കുറയുമെന്നാണ് കണക്കുകൂട്ടൽ ജമ്മുകശ്മീരിലെ ലഡാക്ക് മേഖലയിൽ ഇന്നലെ സീസണിലെ ഏറ്റവും ശക്തമായ മഞ്ഞ് വീഴ്ച ഉണ്ടായി

ഇവിടെ വിമാനസർവ്വീസുകളും നിർത്തിവച്ചിട്ടുണ്ട്

ഹിമാചൽ പ്രദേശിൽ അടുത്ത ആഴ്ചവരെ കനത്ത മഞ്ഞ് വീഴ്ചയ്ക്കും മഴയ്ക്കും സാദ്ധ്യതയുണ്ട്

മേഖലയിൽ കുടുങ്ങിയവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് ന്യൂസ് ഡെസ്ക് ആകാശവാണി

മീറ്റർ ദൈർഘ്യമുള്ള മാർച്ച് സംഘടിപ്പിച്ചത്

ആത്മീയത വിശ്വാസം സൌഹാർദ്ദം എന്നിവയുടെ മേളയായി വിശേഷിക്കപ്പെടുന്ന കുംഭമേളയിൽ പങ്കാളിയാകാനാണ് പ്രതിനിധികൾ ്എത്തുന്നത് വിദേശ പ്രതിനിധികൾ ഗംഗാ പൂജ നടത്തുകയും സംഗമ സ്നാനത്തിൽ പങ്കുചേരുകയും ചെയ്യും

എണ്ണക്കമ്പനി ജീവനക്കാർക്ക് അകമ്പടി പോയ കൂർദിഷ് സേനക്ക് നേരെയാണ് അജ്ഞാതർ ആക്രമണം നടത്തിയത്

സിറിയയിലെ സ്മാധാനം പുനസ്ഥാപിക്കുന്നതിനാണ് സൈന്യത്തെ നിലനിർത്തുന്നതെന്നാണ് അ്മേരിക്കയുടെ വാദം

അപകടത്തിൽ രണ്ട് പേർക്ക് ഗുരുതരമായി പൊള്ളലേറ്റു ഇവരെ ഗോപാൽഗഞ്ച് ആശുപത്രിയിലേക്ക് മാറ്റി

കാസർകോട് വിദ്യാനഗറിൽ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി കണ്ണൂർ ഇരട്ടക്കൊലപാതക കേസ് അട്ടിമറിക്കാനാണ് കേസ്അന്വേഷണം ക്രൈം ബ്രാഞ്ചിനെ ഏൽപ്പിച്ചതെന്ന് കെ

സി സി

ഇതിനുപുറമേ കാസർകോട്ടെ കോൺഗ്ര്സ് നേതാക്കളായ കമറുദ്ദീൻ ഗോവിന്ദൻ നായർ എന്നിവരിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കണഉമ്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു

നേതിാക്കൾ എന്നിവരെയും പ്രതിചേർക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു